സവോള സംഭരിക്കുന്നതിനു ചെറുകിട വ്യാപാരികൾക്ക് അനുവദിച്ചിരുന്ന പരിധി രണ്ട് മെട്രിക് ടണ്ണായി കുറച്ചു

കേരള രാജ്യാന്തര ചലച്ചിത്ര മേള അഞ്ചാം ദിവസത്തിലേക്ക്

മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ ഇന്നലെ രാത്രിയാണ് ലോക്സഭ ബിൽ വോട്ടിനിട്ടത്

മാരത്തൺ ചർച്ചയ്ക്കും പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പിനും ഒടുവിലാണ് ലോക്സഭ ഇന്നലെ രാത്രി പൌരത്വ ഭേദഗതി ബിൽ പാസ്സാക്കിയത്

ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ട ചില ഗോത്രമേഖലകളെയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചില പ്രദേശങ്ങളെയും ബില്ലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്

ഇസ്ലാം മത രാഷ്ട്രങ്ങളായ പാക്ടീസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീവിടങ്ങളിലെ മതപരമായ അടിച്ചമർത്തലാണ് ഇത്തരമൊരു ബിൽ കൊണ്ടുവരേണ്ട സാഹചര്യ്ക്കുണ്ട്ടാക്കിയതെന്ന് അദ്ദേഹം ആവർത്തിച്ചു ഈ മൂന്ന് അയൽരാജ്യങ്ങളിലും ന്യൂനപക്ഷ ജനസംഖ്യ ഇടിയുന്നത് ചൂണ്ടിക്കാട്ടിയ ആഭ്യന്തരമന്ത്രി മുസ്തീംങ്ങളോട് വിവേചനം കാട്ടുന്നില്ലെന്നും അവകാശപ്പെട്ടു ഇപ്പോൾ എന്തിനാണ് ഇത്തരമൊരു ബിൽ എന്ന ചോദ്യമുയർത്തി പ്രതിപക്ഷം ആഭ്യന്തരമന്ത്രിയുടെ പ്രസംഗം തുടർച്ചയായി തടസ്റ്റപ്പെടുത്തി മത അടിസ്ഥാനത്തിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടതുകൊണ്ടാണ് ബിൽ ആവശ്യമായി വന്നതെന്ന് അമിത്ഷാ മറുപടി നൽകി ദേശീയ പൌരത്വ രജിസ്റ്റർ എന്തുവില കൊടുത്തും കൊണ്ടുവരുമെന്നും ആഭ്യന്തര മന്ത്രി വ്യക്തമാക്കി

ബില്ലിലൂടെ രാഷ്ട്രീയ നേട്ടത്തിനായി ബിജെപി ശ്രമിക്കുകയാണെന്നും എൻ

പി വക്താവ് ട്രനവാബ് മാലിക് മുംബൈയിൽ പറഞ്ഞു

ബിൽ ലോക്സഭ നേരത്തെ പാസാക്കിയിരുന്നു കാലാവധി കഴിഞ്ഞ കപ്പൽ പൊളിച്ച് ഘടകഭാഗങ്ങൾ വേർതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടകരമായ പദാർത്ഥങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാനും പുനരുപയോഗ യോഗ്യമായതിനെ വേർതിരിക്കാനുമുള്ള സംവിധാനമാണ് ബില്ലു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന തോക്കുകളുടെ എണ്ണം രണ്ടായി കുറയ്ക്കുന്ന ആയുധ ഭേദഗതി ബിൽ ലോക്സഭയും ഇന്നലെ പാസാക്കി

ഉള്ളിവില നിയന്ത്രിക്കുന്നതിന്റെയും ലഭ്യത ഉറപ്പു വരുത്തുന്നതിന്റെയും ഭാഗമായിട്ടാണ് തീരുമാനം നിലവിലെ പരിധിയായ അഞ്ച് മെട്രിക് ടണ്ണിൽ നിന്ന് രണ്ട് മെട്രിക് ടണ്ണായാണ് കുറച്ചത്

സ്കൂട്ടറിലും മറ്റും ഒറ്റയ്ക്കു സഞ്ചരിക്കേണ്ട സാഹചര്യത്തിൽ പോലീസ് സുരക്ഷ നൽകുമെന്ന് ഡിജിപി ഒ പി സിങ് അറിയിച്ചു

ഇതിലൂടെ എതിർ ലിംഗത്തിലുള്ളവരെ ബഹുമാനത്തോടെ കാണുന്നവരാക്കി വിദ്യാർത്ഥികളെ മാറ്റാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂഡൽഹിയിൽ സ്കൂൾ വിദ്യാഭ്യാസം സംബന്ധിച്ച സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസമെന്നാൽ തൊഴിൽ നേടാനുള്ള സംവിധാനം എന്നതിലുപരി വൃക്തിവികസനത്തിന്റെയും സമൂഹശാക്തീകരണത്തിന്റെയും ഉപാധി കൂടിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി

ഡൽഹി ചീഫ് സെക്രട്ടറി പോലീസ് കമ്മീഷണർ മുനിസിപ്പൽ കമ്മീഷണർ എന്നിവരോടാണ് ഒന്നര മാസത്തിനകം വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടത്

ഈ ചിത്രത്തിലൂടെയാണ് മികച്ച സംവിധായകനുള്ള രജത മയൂരം ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ ലിജോ സ്വന്തമാക്കിയത്

പെർസിമ്മൺസ് ഗ്രൂ കാമിൽ എന്നീ മത്സര ചിത്രങ്ങളുടെ മേളയിലെ ആദ്യ പ്രദർശനവും ഇന്ന് നടക്കും

ഗെയിംസ് ഇന്ന് സമാപിക്കും

ഫുട്ബോളിൽ ഇന്ത്യൻ വനിതകൾ നേപ്പാളിനോട് ഏകപക്ഷീയമായ വിജയമാണ് നേടിയത്

സാഫ് ഗെയിംസിന് ഇന്ന് കൊടിയിറങ്ങും

പൊങ്കാല പ്രമാണിച്ച് കുട്ടനാട് ചെങ്ങ്ണൂർ മാവേലിക്കര താലൂക്കുകളിലെ ഗവൺമെന്റ് ഓഫീസ്ക്ൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ ഇന്ന് പ്രഅവധി പ്രഖ്യാപിച്ചു

വൈകിട്ട് ആറ് മണിക്ക് തിരുവനന്തപുരം മാസ്ക്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും

ഇതുൾപ്പെടെ ഇന്നലെ മാത്രം മൂന്നു തവണയാണ് പൂഞ്ചിൽ പാകിസ്ഥാന്റെ കരാർ ലംഘനം ഉണ്ടായത് ഇന്ത്യൻ സൈന്യവും ശക്തമായി തിരിച്ചടിച്ചു

എസിന്റെയും യു എ ഇ യൂട്ടെയും കരസേനകളുടെ സംയുക്ത സൈനികാഭ്യാസത്തിന് തുടക്കമായി

എ ഇ കരസേനയുടെ കമാൻഡർ മേജർ ജനറൽ സലേ മുഹമ്മദ് സലേ അൽ അമിരിയും യു എസ് ആർമി സെൻട്രൽ കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ ടെറി ഫെറെ ലും സൈനികാഭ്യാസം വീക്ഷിക്കാൻ എത്തി